ഒഴികെയുള്ള പ്രദേശുങ്ങളിൽ ഇന്നുമുതൽ ചില സേവനങ്ങൾക്ക് ഇളവ്

ആയി പ്രഖ്യാപിച്ചു

അതിനാൽ തന്നെ ഒരുമയോടും സാഹോദര്യത്തോടും കൂടിയാണ് ഇതിനെ നാം നേരിടേണ്ടതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൊതുവായ പ്രതിസന്ധിയെയാണ് ലോകം ഇന്ന് നേരിടുന്നതെന്ന് ലിങ്ക്ഡ് ഇൻ എന്ന സാമുഹിക മാധ്യമത്തിലെ പോസ്റ്റിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒത്തൊരുമയോടെ ് മുന്നോട്ട് നീങ്ങുന്നവരുടേതാണ് ഭാവി ലോകം ഇന്ത്യയിൽ നിന്നുള്ള പ്രതീക്ഷ നൽകുന്നതും നവീനവുമായ ആശയങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയാകും ഈ ആശയങ്ങൾ ഇന്ത്യയ്ക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ മുതൽക്കൂട്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സ്വന്തം ജീവനീം സുരക്ഷയും മറന്ന് ഇവർ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്ത്രത് പ്രശംസനീയമാണെന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു

ഇതുപോലെ വിവിധ മേഘലയിൽ ഉള്ള ജനുങ്ങൾ സഹകരിച്ചതാണ് ലോക്ക്ഡൌൺ വിജയിക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു

കൊറോണ പ്രതിരോധ മരുന്നിനായുള്ള ഉന്നതതല കർമ്മസേനയുടെ ശ്രമങ്ങൾ തുടരുകയാണെന്ന് ശ്രീ ലവ് അഗർവാൾ അറിയിച്ചു അതാത് മേഖലകളിലെ മെഡിക്കൽ സംഘങ്ങളുടെ സുരക്ഷ സംസ്ഥാനങ്ങൾ ഉറപ്പാക്കണമെന്ന് ആഭ്യന്തരമന്ത്രാലയ വക്താവ് നിർദ്ദേശം നൽകി

ലോക്ക്ഡൌൺ നീട്ടിയ സാഹചരൃത്തിൽ കർഷകരുടെയും ചെറിയ വരുമാനമുള്ള മറ്റു ജനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്താണ് ഇളവുകൾ നൽകിയത് വൈറസ് ബാധ അധികം ഇല്ലാത്ത പ്രദേശങ്ങൾക്കാണ് ഇളവ് മത്സൃ വില്പന അനുബന്ധ പ്രവർത്തനങ്ങൾ

കോഴി വളർത്തൽ കന്നുകാലി വളർത്തൽ എന്നിവയ്ക്കും ഇളവ് ബാധകമാകും കൽക്കരി ഉത്പാദനം ധാതുക്കളുടെ ഉത്പാദനം എന്നിവയും തുറമുഖങ്ങളുടെ പ്രവർത്തനവും അനുവദിച്ചിട്ടുണ്ട്

ലോക്ക്ഡൌൺ തീരുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് ആഭ്യന്തര സ്ഥ്രക്ട്ടറി അജയ് ഭല്ല അറിയിച്ചു

സി സി പ്രധാൻമന്ത്രി കൌശൽ വികാസ് യോജന വിമുക്തഭടൻമാർ തുടങ്ങിയവരുടെ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആരോഗ്യപ്രവർത്തകരുടെ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ സംവിധാനത്തിൽ നോഡൽ ഓഫീസർമാരെ ഉൾപ്പെടെ ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗമാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലയളവിൽ ഒരു ഇളവും നൽകേണ്ടെന്ന കേന്ദ്രസർക്കാരിന്റെ നിർദ്ദേശം പാലിക്കാനും യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി കെ

ജോയിന്റ് സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് മുതൽ ജോലിക്ക് എത്തണം

പോസിറ്റീവ്ക്കേസ് സമ്പർക്കം തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് ഹോട്ട്സ്പ്പോട്ടുകൾ തയ്യാറാക്കിയതെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ് അറിയിച്ചു രോഗ വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസംതോളും ഹോട്ട്സ്പോട്ടുകൾ പുനർനിർണയിക്കുമെന്നും മൂന്തി ഫ്റഞ്ഞു തിരുവനന്തപുരത്തും തൃശൂരും മൂന്ന് വീതവും പൂക്കാല്പത്ത് അഞ്ചും ആലപ്പുഴയിൽ മൂന്നും പത്തനംതിട്ടയിൽ ഏഴും ക്കോട്ടയത്ത് ഒന്നും ഇടുക്കിയിൽ ആറും എറണാകുളത്ത് രണ്ടും പാ്ലക്കാട് നാലും ഹോട്ട്സ്പോട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്

വയനാട്ടിൽ രണ്ട് പഞ്ചായത്തുകളാണ് ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉള്ളത്

പച്ച ഓറഞ്ച് ബി സോണുകളിലെ ജില്ലകളിലാണ് ഇളവുകൾ നിലവിൽ വന്നത് എന്നാൽ ഈ മേഖലകളിൽ ജില്ലാ അതിർത്തി കടന്നുള്ള യാത്രകൾ നിരോധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സിനിമാ തിയേറ്ററുകൾ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ പാർക്കുകൾ ബാറുകൾ മുതലയായവ പ്രവർത്തിക്കില്ല ജനങ്ങൾ കൂട്ടംകൂടുന്ന എല്ലാതരം പരിപാടികളും നിരോധിച്ചിട്ടുണ്ട് ഒറ്റ അക്ക രജിസ്ട്രേഷൻ നമ്പറുകളിൽ അവസാനിക്കുന്ന വാഹനങ്ങൾക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ യാത്രാനുമതി നൽകിയിട്ടുണ്ട് ഇരട്ട അക്ക വാഹനങ്ങൾക്ക് അനുമതിയുള്ളത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഓറഞ്ച് എ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ ഇളവുകൾ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും

മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പാസുകളുമായി എത്തുന്നവരെ കേരളത്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ നേരത്തെയുള്ള ഉത്തരവ് അനുസരിച്ച് ഗർഭിണികൾ ചികിത്സക്ക് എത്തുന്നവർ മരണാനന്തരചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നവർ തുടങ്ങിയവരെ സംസ്ഥാന അതിർത്തി കടക്കാൻ അനുവദിക്കുമെന്നും ശ്രീ ടോം ജോസ് അറിയിച്ചു

മാസ്ക് ആശുപത്രിയിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ തുടങ്ങി വൈറസ് പ്രതിരോധം തടയാൻ വേണ്ട സാമഗ്രികൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു

സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ എയർ ലൈൻസുകളെ അറിയിക്കുമെന്നും മെയ് നാല് മുതൽ വിമാന സർവീസ് പുനരാരംഭിക്കാൻ ഇതുവരെ തീരുമാനം ഒന്നും ആയിട്ടില്ലെന്നും ഏവിയേഷൻ റെഗുലേറ്ററിൽ പറയുന്നു